കണ്ടെത്തുക മാത്രമല്ല അവയെ കൈകാര്യം ചെയ്യുന്നതിനുള്ള നടപടികളും എൻ

എ ഗവൺമെന്റ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കോവിന്ദ് ഇന്ന് യ്യൂത്ര്തിരിക്കും

ഗെയിംസിന് ഇന്ന് കൊടിയിറങ്ങും

എ ഗ്ലീവ്യ്മെന്റ് സ്വീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ന്യൂഡെൽഹിയിൽ ഇന്ത്യ പോസ്ററ് പേയ്മെന്റ്സ് ബാങ്കിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാങ്കുകളെ വഞ്ചിച്ചവരിൽ നിന്ന് പണം തിരികെ ഈടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി ശ്രീ മോദി പറഞ്ഞു

നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ അദ്ദേഹം ഇന്ത്യാ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിലൂടെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന ലക്ഷ്യം നേടുമെന്നും ശ്രീ രാജ്നാഥ് സിങ് കൂട്ടിച്ചേർത്തു ജൻധൻ അക്കൌണ്ടുകൾ തുറക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് മുൻകൈ എടുത്തായി രാജ്യരക്ഷാമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ചെന്നൈയിൽ യൂട്ടി ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യൻ പ്രേസ്റ്റ് പേയ്മെന്റ് ബാങ്ക് രാജ്യത്തെ വിദൂര മേഖലയിൽ ഉള്ളവരെപ്പോലും ബാങ്കിംഗ് മുഖ്യധാരയിലേയ്ക്ക് കൌണ്ടുവരാനും സാമ്പത്തികമായി അവരെ ശക്തിപ്പെടുത്തുവാനും സ്താധിക്കുമെന്ന് ബി

പി അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു

സൈപ്രസ് ബൾഗേറിയ ചെക്ക് റിപ്പബ്ലിക്ക് എന്നീ രാഷ്ട്രങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സൈപ്രസിൽ എത്തിച്ചേരുന്ന ശ്രീ രാംനാഥ് കോവിന്ദ് സൈപ്രസ് പ്രസിഡന്റ് നികോസ് അനസ്തേ സിയാദാസുമായി കൂടിക്കാഴ്ച നടത്തും സന്ദർശനത്തിന്റെ ഭാഗമായി സൈപ്രസ് പ്രതിനിധി സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും

ചൊവ്വാഴ്ച ബൾഗേറിയ സന്ദർശിക്കുന്ന ശ്രീ രാം നാഥ് കോവിന്ദ് ബൾഗേറിയൻ പ്രസിഡന്റ് രാദേവുമായും പ്രധാനമന്ത്രി ബോയ്കോ ബോറിസ്സോവുമായും കൂടിക്കാഴ്ച നടത്തും

കോവിന്ദ് ചെക്ക് റിപ്പബ്ലിക്കിൽ എത്തിച്ചേരും

രാംനാഥ് കോവിന്ദ് ചർച്ച നടത്തും

ഇതിനായുള്ള് കരട് നിയമങ്ങൾ തയ്യാറാക്കി വ്യാജ മരുന്നുകൾ ഒഴിപ്പാക്കി വിശ്വാസയോഗ്യമായ പോർട്ടലുകൾവഴി യഥാർത്ഥ മരുന്നുകൾ ജനങ്ങൾക്കു ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി നിശ്ചിത രജിസ്ട്രേഷനില്ലാതെ ഇ ഫാർമസി വഴി മരുന്നുകൾ ഓൺലൈൻ വിൽപ്പന നടത്തുകയോ സ്റ്റോക്കുചെയ്യുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് കരട് നിയമത്തിൽ പറയുന്നു ഇത് സംബന്ധിച്ച് രജിസട്രേഷനായി സെൻട്രൽ ലൈൻസിങ് അഥോറിറ്റിയിൽ അപേക്ഷിക്കാമെന്ന് കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളർ ഈശ്വര റെഡ്ഡി പറഞ്ഞു

രാജ്യസഭയുടെ അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷമുള്ള ഒരു വർഷത്തെ തന്റെ അനുഭവങ്ങളാണ്പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്

ന്യൂഡെൽഹിയിൽ പത്താമത് ലാ ടീച്ചേഴ്സ് ഡേ അവാർഡ് സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമ വൈകല്യങ്ങളെ ദൂരികരിക്കുന്നതിനായി നിയമവിദഗ്ദ്ധർ അവരുടെ അറിവ് പുതുക്കേണ്ടി വരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സാങ്കേതിക പുരോഗതിയും ഉദാരവൽക്കരണവും മൂലം പുതിയ പലകുറ്റകൃതൃങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും നിയമ വിദഗ്ദധർ അവ പരിഹരിക്കേണ്ടിവരുമെന്നും ശ്രീ വെങ്കയ്യനായിഡു പറഞ്ഞു

ഗെയിംസിന് ഇന്ന് കൊടിയിറങ്ങും കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ

ഇന്നലെ ഇന്തൃ രണ്ട് സ്വർണ്ണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടി ബ്രിജിൽ പ്രണബ് ബർദൻ ശിബ്നാഥ് സർക്കാർ സഖ്യവും ബോക്സിംഗിൽ അമിത് പംഘലുമാണ് സ്വർണ്ണ ജേതാക്കൾ ദീപിക പള്ളിക്കൽ സുനൈന കുരുവിള എന്നീ മലയാളികൾ അടങ്ങിയ വനിതാ സ്കാഷ് ടീം വെള്ളിയും പി

ശ്രീജേഷിന്റെ നേതൃത്വത്തിലുള്ള പുരുഷ ഹോക്കി ടീം പാകിസ്ഥാനെ തോൽപ്പിച്ച് വെങ്കവും നേടി മെഡൽ പട്ടികയിൽ ഇന്ത്യ എട്ടാം സ്ഥാനത്താണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപ്പിപ്പിച്ച സംസ്ഥാനത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അഭീന്ദ്ദിക്കുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടിനെ ലോകനിലവാരത്തിൽ ഉയർത്തിയെടുക്കാൻ അന്താരാഷ്ട്ര ഏജൻസികളുടെയടക്കു സൂഹായം തേടി മുന്നോട്ടുപോകും മഹാദുരന്തത്തെ മഹാപ്ര്യത്നത്തിലൂടെ അതിജീവിച്ച നാടെന്ന് കേരളത്തെ ലോകം വാഴ്ത്തുമെന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു

ഈശ്ചരനും സംയുക്തമായി നിർവ്വഹിച്ചു